രണ്ടാം ഘട്ടത്തിന് മിക്ച്ചു പ്രതികരണം പ്രതിദിന കോവിഢ് വ്യാപനത്തിൽ ഗണ്യമായ കുറവ്

ഇന്ന് വാഹന പണിമുടക്ക് വിവിധ പരീക്ഷകൾ മാറ്റി

വിശദാംശങ്ങൾ

സീറ്റ് വിഭജനം സംബന്ധിച്ച് എൽഡിഎഫിൽ ഇന്നും ഉഭയകക്ഷി ചർച്ചകൾ നടക്കും മുന്നണിയിലെത്തിയ പുതിയ കക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് നൽകുകയാണ് പ്രധാന കടമ്പ

സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക്കായി കാസർകോട് കോഴിക്കോട് പാലക്കാട് എറണ്ടുകുള്ം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളും ചേരുകയാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഡി എഫ് വിജയിച്ച കൊല്ലം ജില്ല ചൂടേറിയ രാഷ്ട്രീയ ചർച്ച്കുൾക്ക് വേദിയാവുകയാണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഞങ്ങളുടെ ജില്ലാ പ്രതിനിധി നീരജ് ലാൽ

എം

മുൻനിലപാടിൽ നിന്ന് ഡി എം കെ അയഞ്ഞതോടെ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ

കോവിഡ് വാക്സിൻ രണ്ടാം ഘട്ടം സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ യജ്ഞം രണ്ടാം ഘട്ടത്തിന് മികച്ച പ്രതികരണം പല ജില്ലകളിലും ലക്ഷ്യമിട്ടതിലും കൂടുതൽ പേർ ആദ്യദിനം തന്നെ വാക്സിൻ സ്വീകരിക്കാനെത്തി

കെ ശൈലജ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി വാക്സിൻ സ്വീകരിച്ചു

ഷാർജയിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്നാണ് സ്വർണം പിടിച്ചത്

രാജസ്ഥാൻ സ്വദേശിയിൽ നിന്നാണ് പണം പിടികൂടിയത് തുടർ നടപടികൾക്കായി ആദായനികുതി വകുപ്പിന് കൈമാറിയതായി റയിൽവേ സംരക്ഷണ സേന അധികൃതർ അറിയിച്ചു മംഗലാപുരം ചെന്നൈ മെയിലിലിലെ യാത്രക്കാരനിൽ നിന്നാണ് പണം പിടികൂടിയത്

എസ് ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്

ടി

ഓട്ടോ ടാക്സി സ്ഥകാര്യ ബസുകൾ എന്നിവയും രാവില്പെട്ആറ് മുതൽ വൈകിട്ട് ആറ് വരെയുള്ള പണിമുടക്കിൽ പ്രങ്കുഴ്ചേരുന്നുണ്ട്

എച്ച്

കേരള കാലിക്കറ്റ് എം

ആരോഗൃ ശാസ്ത്ര സർവകലാശാലയുടെ മൂന്നാംവർഷ എം

സി

സ്വകാര്യ ബസുകൾ ഒട്ടുംതന്നെ ഓടുന്നില്ല ചെറിയൊരു ശതമാനം സർവീസ് മാത്രമാണ് കെ എസ് ആർ ടി

സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി

ഇത് ഈ മാസം അഞ്ചിന് നടത്തുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ അറിയിച്ചു ആഴക്കടൽ മത്സ്യബന്ധനം ആഴക്കടൽ മത്സ്യബന്ധന വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ടി എൻ പ്രെതാപൻ എം പിയുടെ നേതൃത്വത്തിൽ യു ഡി

സി വർക്കിങ് പ്രസിഡന്റ് കെ

ഷിബു ബേബി ജോൺ നയിക്കുന്ന യു ഡി എഫ്ട് ദ്രക്ഷിണ മേഖലാ തീരദേശ ജാഥക്ക് ഇന്ന് വൈകിട്ട് നെയ്യാറ്റിൻകരയിൽ തുടക്കമാകും

സി

രണ്ട് ജാഥകളും ശനിയാഴ്ച എറണാകുളം വൈപ്പിനിൽ സമാപിക്കും

സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്ര കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തുന്നു ഇടുക്കിയാൽ നിന്നെത്തിയ യാത്രയെ ജില്ലാ അദ്ധ്യക്ഷൻ നോബിൾ മാത്യുവിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച് ആദ്യ സ്വീകരണ വേദിയായ കടുത്തുരുത്തിയിലേക്ക് നയിച്ചു പാലാ പൊൻകുന്നം മണർകാട് ചങ്ങനാശേരി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം വൈകിട്ട് കോട്ടയത്ത് നടക്കുന്ന മഹാ സമ്മേളനം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഉദ്ഘാടനം ചെയ്യും കാറി പെർമിറ്റുകൾ നിയമപരമായ പരിശോധനകളും ചട്ടപ്രകാരമുളള നടപടിക്രമങ്ങളും പാലിക്കാതെ കാറി പെർമിറ്റുകൾ ഒരു വർഷത്തേക്ക് കൂടി നീട്ടിക്കൊടുത്ത സർക്കാർ നടപടി സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് എൻ

പ്രേമചന്ദ്രൻ എം

കേരളത്തിൽ പാറ ഖനനം ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ നിലപാട് ദുരൂഹവും ജനതാല്പരൃത്തിനു വിരുദ്ധവുമാണ് ആഴക്കടൽ മത്സൃബന്ധന കരാറിനു സമാനമായ സർക്കാരിന്റെ മറ്റൊരു ഇടപെടലാണ് പാറ ഖനന പെർമിറ്റിന് പിന്നിലുമെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു താപനില കോട്ടയം ഇൻട്രോ കോട്ടയത്ത് താപനില ശരാശരിയിലും ഏറെ ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുട്ടിട്ട് മു്ന്നറിയിപ്പ്

ആലപ്പുഴ ജില്ലയിലും ചൂട് ശ്രീരാശരിയിലും രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ കൂടാൻ സ്കൂർ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു

ചലച്ചിത്ര മേളകളും ഫിലിം സൊസൈറ്റി പ്രസ്ഥാനവും എന്ന വിഷയത്തിലാണ് ആദ്യ ദിനത്തിലെ സംവാദം